സംഘത്തലവൻ ആഭ്യന്തര ജോയിന്റെ സെക്രട്ടറി ശ്രീപ്രകാശിന്റെ നേതൃത്വത്തിലാണ് മല പ്പുറത്ത് സംഘം എത്തിയത് രാവിലെ കരിപ്പൂർ വിമാനത്താവ ളത്തിലെത്തിയ നാലംഗ സംഘം മഞ്ചേരിയിൽ ജില്ലാതല ഉദ്യോ ഗസ്ഥരുമായി ചർച്ച നടത്തി

കയ്പിനി പാലം പൂക്കോട്ടു മണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പാതാർ കവളപ്പാറ അമ്പു ട്ടാൻപൊട്ടി മുണ്ടേരി എന്നിവിടങ്ങളിൽ ഉച്ചയോടെ സന്ദർശനം പൂർത്തിയാക്കും ഉച്ചകഴിഞ്ഞ് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എടവണ്ണ കീഴുപറമ്പ് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി നഷ്ടം വിലയിരുത്തും ആലപ്പുഴയിൽ മൂന്നംഗ സംഘം രാവിലെ മന്ത്രി ജി സുധാ കരന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കലക്ടറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ഉച്ചക്ക് മൂന്ന് വരെ കുട്ടനാട്ടിലെ പ്രളയ ബാധിത മേഖലകളിലായിരിക്കും സംഘത്തിന്റെ സന്ദർശനം അതിന് ശേഷം കട ലാ ക്രമണ പ്രദേശങ്ങളും തോട്ട പ്പള്ളി സ്പിൽവേയും കാട്ടൂർ ഒറ്റമശ്ശേരിയും അവർ സന്ദർശിക്കും

വെള്ളിയാഴ്ച്ചു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയേയും മന്ത്രി ഇ ചന്ദ്രശേഖര നേയും കണ്ട് വിഷയം ചർച്ച ചെയ്യും

നിർമ്മാണസ്ഥലത്ത് ഓവർസിയർമാരുടെയും ഫീൽഡ് എഞ്ചിനീയർമാരുടെയും സാന്നിധ്യം മേലുദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു നിർദ്ദീഷ്ട സമയത്തിനകം ജോലികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഫ്ളാറ്റ് പൊളി ക്കണമെന്ന സുപ്രീം കോടതി വിധിയിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ മൂന്നരക്ക് ചേരുന്ന യോഗം ചർച്ച ചെയ്യും

തങ്ങൾ നിയമപരമായാണ് ഫ്ളാറ്റ് വാങ്ങിയ തെന്നും അവർ പറഞ്ഞു ഫ്ളാറ്റ് ഉടമകളെ കമ്പനികൾ വഞ്ചി ക്കുകയായിരുന്നുവെന്ന് തെളിവുനൽകുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് സർവക ക്ഷി യോ ഗ ത്തിൽ പങ്കെ ടു ക്കു ന്ന തിന് മുമ്പ് യു ഡി എഫ് ഘടകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തു മെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു

അഴിമതിയ്ക്കും നിയമലംഘ നത്തിനും കൂട്ടുനിൽക്കരുതെന്നും വഴിവിട്ട് അനുമതി നൽകി യവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം ഇന്നത്തെ സർവകക്ഷിയോഗം ചർച്ച ചെയ്യണമെന്നും വി എസ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു മരടിലെ അഞ്ച് ഫ്ളാറ്റുകൾ പൊളിച്ചുനീക്കണമെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കുക തന്നെ വേണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ആവശ്യ പ്പെട്ടു പിഴയടച്ച് ക്രമപ്പെടുത്താൻ അനുവദിക്കരുതെന്നും സംഭ വത്തിൽ നിർമ്മാതാക്കൾ തന്നെയാണ് കുറ്റക്കാരെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചകഴിഞ്ഞ് മൂന്നിന് തിരുവനന്തപുരത്ത് മുഖ്യ മന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

സംസ്ഥാനത്ത് പ്രതിവർഷം നാൽപതി നായിരത്തോളം റോഡപകടങ്ങൾ ഉണ്ടാകുന്നതായാണ് സ്ഥിതി വിവര കണക്കുകൾ നൽകുന്ന സൂചന

ഗുജറാത്ത് ഗവൺമെന്റ് സംഘടി പ്പിച്ച നമാമി ദേവി നർമ്മദ മഹോത്സവ ചടങ്ങിൽ പങ്കെടു ത്താണ് അദ്ദേഹം ആരതിയർപ്പിച്ചത് രാവിലെ സർദാർ സരോവർ അണക്കെട്ടും സമീപത്തെ സർദാർ വല്ലഭായ് പട്ടേൽ ഏകതാ പ്രതിമയും സന്ദർശിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ജന്മദിനചടങ്ങുകൾ തുടങ്ങിയത് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയ്ക്കൊപ്പം അദ്ദേഹം

പൂന്തോട്ടവും സന്ദർശിച്ചു സംസ്ഥാന ശലഭത്തെയും അദ്ദേഹം പ്രഖ്യാപിച്ചു അണക്കെ ട്ടിന് സമീപം പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോ ധന ചെയ്യും ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും മന്ത്രിസഭാ സഹപ്രവർത്തകരും മുതിർന്ന ബി ജെ പി നേതാക്കളും മറ്റ് പാർട്ടി നേതാക്കളും നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്നു

രാവിലെ തൊടുപുഴയിൽ ജോസഫിന്റെ വീട്ടിലെത്തിയാണ് സ്ഥാനാർത്ഥി കൂടിക്കാഴ്ച നടത്തിയത് ജോസഫ് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്കു ശേഷം ജോസ്ടോം തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പാലാ ഉപതെരഞ്ഞെടുപ്പിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് യു ഡി എഫ് തെരഞ്ഞെ ടുപ്പ് കമ്മീഷന് പരാതി നൽകി

സംഭവത്തിൽ ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാകലക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു

എന്നാൽ ഈ രണ്ട് കമ്പനികളിലും പരിശോധിക്കാൻ സ്വകാര്യ കമ്പനികൾക്കാണ് അനുമതി നൽകിയത് കിഫ്ബി പദ്ധതിയിൽ പരിശോധിക്കുന്നത് ടെറാനസ് എന്ന കടലാസ് കമ്പനിയാണ്

നിരവധി ക്രമക്കേടു കൾ നടന്നതിനാലാണ് സി എ ജി ഓഡിറ്റ് വേണ്ടെന്ന് ഗവൺമെന്റ് പറയുന്നത് കിഫ്ബിയുടെ പ്രവർത്തനം സുതാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകിയതായും അദ്ദേഹം പറഞ്ഞു പാലാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല ഭൂരിപക്ഷ ത്തോടെ വിജയിക്കു മെന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു

വില്ലൻ വേഷങ്ങളായിരുന്നു ഇവയിൽ ഏറെയും

മൂന്ന് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും സംഗീത സംവിധായകനുമായ വടകർ എം കുഞ്ഞിമൂസ അന്തരിച്ചു

കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ അദ്ദേഹം ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ പ്രത്യേക ക്ഷണിതാവായിരുന്നു നിരവധി ലളിതഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട് അക്കിത്തം ജി ശങ്കരകുറുപ്പ് തിക്കൊടിയൻ പൂവച്ചൽ ഖാദർ ശ്രീധരനുണ്ണി എന്നിവരുടെ രചനകൾക്ക് സംഗീതം നല്കിയാണ് ശ്രദ്ധേയനായത് തലശ്ശേരിയിൽ ചുമ ട്ടുതൊഴിലാളിയായിരുന്ന കുഞ്ഞിമൂസ സംഗീത സംവിധായ കൻ കെ രാഘവൻമാസുറുടെ പിന്തുണയോടെയാണ് ഗാനമേ ഖലയിൽ സജീവമായത്

യേശുദാസ് കെ ജി മാർക്കോസ് തുടങ്ങിയവർ ആലപിച്ച ഗാനങ്ങൾക്ക് കുഞ്ഞിമൂസ സംഗീതം പകർന്നിട്ടുണ്ട് ഗായകൻ താജുദ്ദീൻ വടകരയുടെ പിതാവാണ് താജുദ്ദീനെ പ്രശസ്തനാക്കിയ നെഞ്ചിനുള്ളിൽ നീയാണ് എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയതും കുഞ്ഞിമൂസയായിരുന്നു ഖബറടക്കം വൈകീട്ട് വടകരയിൽ നടക്കും

കോഴിക്കോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻജീനിയേഴ് സ് ഇന്ത്യയുടെ ആഭിമുഖൃത്തിൽ എൻജീനിയറിംഗ് മേഖലയിലെ പുത്തൻ പ്രവണതകൾ എന്ന സെമിനാറിൽ സംസാരിക്കു കയായിരുന്നു അദ്ദേഹം

കേരളത്തെ പുനർനിർമ്മിക്കണം പ്രപളയം മനുഷ്യനിർമിത ദുരന്തമാണെന്നും പരിസ്ഥിതിയെ മാനിക്കാത്ത പ്രവർത്തനങ്ങൾ ഇതിന് കാരണമായതായും അദ്ദേഹം അഭി പ്രായപ്പെട്ടു

എസ് ന്റെ നേതൃത്വ ത്തിൽ വൈകീട്ട് നാലിന് കോട്ടയത്ത് മഹാശോഭയാത്ര നടക്കും

ബിഎംഎസ് ന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ഇന്ന് തൊഴിലാളി ദിന മായി ആഘോഷിക്കുകയാണ്

നിലവിലെ ചാമ്പൃൻമാ രായ ലിവർപൂൾ കരുത്തരായ ബാഴ്സലോണ ബെറുസിയ ചെൽസി ഇന്റർമിലോൺ ടീമുകൾ ആദ്യദിനം കളത്തിലിറ ങ്ങും

മാരാർജിയുടെ എൺപത്തി ആറാം ജന്മദിനം ബി ജെ

കണ്ണൂർ ജില്ലാ ആസ്ഥാനമായ മാരാർജി ഭവനിൽ ആചരിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറുപത്തി ഒൻപതാം പിറന്നാൾ ദിനത്തിൽ കണ്ണൂർ പിള്ളയാർ കോവിലിൽ പ്രത്യേക പൂജയും മധുര പലഹാര വിതരണവും നടത്തി

സൈബർകേസുകളിൽ ശിക്ഷ ദുർബ ലമാകുമ്പോൾ കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രവണത കൂടുകയാ ണെന്നും ഇതിന് മാറ്റം വരണമെങ്കിൽ നിയമഭേദഗതി വരുത്തി കുറ്റവാളികൾക്ക് കനത്ത ശിക്ഷ നൽകമെന്നും അവർ ആവശ്യപ്പെട്ടു

സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു